പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി മാത്യു ടി തോമസ് ലൈഫ് മിഷന്റെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളുടെ പൂർത്തീകരണ ത്തിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പ്രധാന പരിഗണന നൽകണമെന്ന് മന്ത്രി ഡോക്ടർ കെ

ജലീൽ ലോകകപ്പ് ഫുട്ബോളിലെ കാർട്ടർ പോരാട്ടങ്ങൾ ഇന്ന് ആരംഭിക്കും ഫ്രാൻസ് ഉറുഗ്വേയും ബ്രസീൽ ബൽജിയത്തെയും നേരിടും കായിക ഇനങ്ങളിൽ വാതുവെപ്പും ചൂതാട്ടവും നിയമവിധേയമാക്കണ

കാർഷിക മേഖലയിൽ ഉല്പാ ദനം വർദ്ധിപ്പിച്ച് കൃഷി ചെലവ് കുറയ്ക്കുന്നതിനാണ് ഗവൺമെന്റ് ഊന്നൽ നൽകുന്നതെന്നും അദ്ദേഹം വൃക്തമാക്കി ന്യൂഡൽഹിയിൽ കർഷകരുമായി സംസാരിക്കുകയായിരുന്നു രാധാമോഹൻസിംഗ് രാജ്യ ത്തിന്റെ വിവിധ ഭാഗങ്ങളിൽനിന്നെത്തിയ കർഷകർ ഗവൺമെന്റ് തീരു മാനത്തെ സ്വാഗതം ചെയ്തു

റ്റീവ് കമ്മിറ്റി ഇന്ന് കൊച്ചിയിൽ യോഗം ചേരും

കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി മാത്യു ടി തോമസ് പറ ഞ്ഞു പാലക്കാട് ജില്ലയിൽ വിവിധ സമഗ്ര കുടിവെള്ള പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജ്ല ശുദ്ധീക രണത്തിന് ഭാരിച്ച ചെലവ് വരുമ്പോഴും കുറഞ്ഞ് നിരക്കിലാണ് ഗവൺമെന്റ് വെള്ളം വിതരണം ചെയ്യുന്നത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തു ന്നതിന്റെ ഭാഗമായി ഭാരതപ്പുഴ പെരിയാർ പമ്പ എന്നീ നദികളെ വീണ്ടെ ടുക്കാൻ ഗവൺമെന്റ് പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു

വീടുകളുടെ എണ്ണ ത്തിൽ മാറ്റം വരുത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് വയ നാട് ജില്ലകളുടെ നടപ്പുവർഷത്തെ പദ്ധതി പ്രവർത്തന പുരോഗതി കോഴി ക്കോട്ട് അവലോകനം ചെയ്യുകയായിരുന്നു മന്ത്രി നടപ്പുസാമ്പത്തിക വർഷം പദ്ധതി പ്രവർത്തനങ്ങളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു

മികച്ച പ്രകടനം നടത്തിയ തദ്ദേശഭരണസ്ഥാപനങ്ങൾക്ക് പുരസ്കാരവും മന്ത്രി വിതരണം ചെയ്തു

രാമകൃഷ്ണൻ പറഞ്ഞു കേന്ദ്ര നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ച് സംസ്ഥാനത്ത് കടന്നു കയറാൻ അന്യസംസ്ഥാന ലോട്ടറികൾ നടത്തുന്ന ശ്രമം തടയാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി വൃക്തമാ ക്കി ഭിന്നശേഷിക്കാരായ ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്ക് ജില്ലാ തല ട്രൈസ്കൂട്ടർ വിതരണം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു അദ്ദേഹം സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സുവർണ്ണ ജൂബിലിയോട നുബന്ധിച്ച് ഭാഗൃക്കുറി ക്ഷേമനിധി ബോർഡാണ് ജില്ലാതല സ്കൂട്ടർ വിത രണം സംഘടിപ്പിച്ചത്

മൂന്നുവർഷത്തിനകം ഭവനരഹിതരില്ലാത്ത ആദ്യ സംസ്ഥാന മായി കേരളം മാറുമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ പറഞ്ഞു

കേരള ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി കൾ പുരോഗമിക്കുകയാണെന്നും മൂലധനമില്ലാത്തിനാൽ ബാങ്ക് മുട ങ്ങുമെന്ന ആശങ്ക വേണ്ടെന്നും മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറ ഞ്ഞു മലപ്പുറത്ത് കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി റിസർവ്വ് ബാങ്കിന്റെ അനുമതിയാണ് കേരള ബാങ്കിന്റെ പ്രധാന കടമ്പയെന്നും മന്ത്രി പറഞ്ഞു

രാജു കൊല്ലത്ത് നിർവഹിച്ചു ആടുവളർത്തിലിന്റെ പ്രയോജനം പൂർണമായി ലഭ്യമാ ക്കാനാണ് പുതിയ പരിശീലന പരിപാടി നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു പോത്തുവളർത്തൽ പദ്ധതി നടപ്പാക്കാനുദ്ദേശിക്കു ന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു പോത്തിൻ കുട്ടികളെ കർഷകർക്ക് നൽകി വളർത്തി തൂക്കം കണക്കാക്കി തിരികെ വാങ്ങുന്നതുവഴി കർഷകർക്ക് ലാഭം ഉറപ്പാക്കനാകും ഓണാട്ടുകര മേഖലയിലാണ് പദ്ധതി തുടങ്ങുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കി കറവപ്പശുകൾക്ക് ഗ്വൺഉമന്റ് സബ് സിഡിയോടെ നടപ്പിലാക്കുന്ന ഗോസമൃദ്ധി ഇൻഷുറ്റൻസ് പോളിസി വിതരണവും കന്നുകുട്ടികൾക്ക് കാലിത്രീറ്റ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്ന ഗോവർധിനി പദ്ധതിയുടെ പാസ്ബുക്ക് വിതരണവും ഉരുക്കൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാര വിതരണവും മന്ത്രി നിർവഹിച്ചു ഉപനിഷത്തുകൾ ആത്മീയതയുടെ ഭണ്ഡാരങ്ങളാണെന്നും വൈവിധൃങ്ങളുടെ ഇടയിൽ അന്തിമമായ ഒരുമ പകർന്നു നൽകാൻ അവ യ്ക്കാവുമെന്നും ഗവർണർ പി സദാശിവം പറഞ്ഞു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ എട്ട് ഉപനിഷത്തുകളുടെ വ്യാഖ്യാനം തിരു വനന്തപുരത്ത് പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ പര സ്പരം പോരടിക്കാൻ പ്രേരിപ്പിക്കുന്ന അജ്ഞത അകറ്റുന്നതിന് ഉപനി ഷത്തുകൾക്ക് സാധിക്കും രാജ്യങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലും സ്പർദ്ധ വർദ്ധിച്ചുവരുന്ന കാലഘട്ടത്തിൽ ഉപനിഷത്തുകൾ ഏറെ പ്രസ ക്തമാണെന്ന് ഗവർണർ പറഞ്ഞു

ലോകകപ്പിലെ ക്വാർട്ടർ പോരാട്ടങ്ങൾ ഇന്ന് ആരംഭിക്കും

ആദ്യമത്സരം ജയിച്ച ഇന്ത്യ മൂന്നു മത്സരപരമ്പരയിലെ രണ്ടാം മത്സരവും ജയിച്ച് പരമ്പര ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാർഡിഫിൽ കളിക്കിറങ്ങുന്നത്

ട്ടവും നിയമവിധേയമാക്കണമെന്ന് നിയമ കമ്മീഷൻ ഗവൺമെന്റിന് ശുപാർശ നൽകി ശക്തമായ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തി ഉപാധികളോടെ വാതുവെപ്പും ചൂതാട്ടവും അംഗ്വീകരിച്ച് അതിലൂടെ നികുതി വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു ഒത്തുകളിയും കള്ളക്കളിയും തുടയാൻ ശ്ക്തമായ നിയമം കൊണ്ടുവരണമെന്നും ജസ്റ്റിസ് വി

ചൌഹാൻ ചെയർമാനായ കമ്മീ ഷൻ ശുപാർശ ചെയ്തു എലിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് അറിയിച്ചു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ എല്ലാ ആശുപത്രികളിലും ഇതിന് ചികിത്സ ലഭ്യമാണെന്നും ആരോഗ്യവ കുപ്പ് പറഞ്ഞു ് കാലവർഷത്തിന് നേരിയ ശമനം ഉണ്ടായെങ്കിലും പനി ബാധി തരുടെ എണ്ണം പത്തനംതിട്ട ജില്ലയിൽ വർദ്ധിക്കുന്നു

മൂന്നു പേർക്ക് ഡങ്കിപ്പനിയും രണ്ടു പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു കുന്നന്താനം കോന്നി പത്തനംതിട്ട എന്നിവിടങ്ങളിലാണ് ഡങ്കിപ്പനി സ്ഥിരീകരിച്ചത്

ട ഇടുക്കി സേനാപതിയിലെ എൻ എച്ച്

ഹോമിയോപ്പതി ക്സിനിക്കിന്റെ ഹോമിയോ ചികിൽസാ പദ്ധതിയായ പുനർജനിക്ക് മികവിന്റെ അംഗീകാരം ലഭിച്ചു

ശീതകാല പച്ചക്കറികളുടെ കലവറയായ ഇടുക്കിയിലെ വട്ടവടയിലെത്തി കേന്ദ്ര ബഹിരാകാശ വകുപ്പിനു കീഴിൽ മേഘാലയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശാസ്ത്ര സംഘം അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പ്രദേശത്ത് പഠനം നടത്തി

ഇടുക്കി ജില്ലയിലെ ഏലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പൈസസ് ബോർഡ് ചെയർമാൻ സുഭാഷ് വാസു പറഞ്ഞു ഇടുക്കി മൈലാടുംപാറ ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ കർഷകരുമായി ചെയർമാൻ ചർച്ച നടത്തി ഓർഗാനിക് കുരുമുളക് സ്പൈസസ് ബോർഡിന്റെ നേതൃത്വത്തിൽ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനും വിപണി വില ഉയർത്തുന്നതിനും ശ്രമം ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു

കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ

ഇന്നലെ രാത്രിയായിരുന്നു അപകടം

കൊല്ലം പുനലൂരിൽ മക്കൾ പൂട്ടിയിട്ട വൃദ്ധനെ തലയിലെ മുറിവിൽ പുഴുവരിച്ച് അവശ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ഇടപെട്ടു